ക്കെടുതികൾ പ്രധാനമന്ത്രി വിലയിരുത്തി കോവിഡ് പ്രതിരോധ നടപടികളും നരേന്ദ്രമോദി അവലോകനം ചെയ്തു

ആറ് സംസ്ഥാനങ്ങളിലെ മുഖ്യ മന്ത്രിമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് അദ്ദേഹം സ്ഥിതി വിലയിരുത്തിയത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നേരിടാനുള്ള തയ്യാറെടുപ്പും യോഗം ചർച്ച ചെയ്തു

വെള്ളര്പ്പാക്ക് മൺസൂൺ മുന്നറിയിപ്പ് നൽകുന്നതിന് സ്ഥിരമായത്രിം നൂതനമായതുമായ സംവിധാനം ഉണ്ടാകേണ്ടതാണെന്ന് പ്രിധ്യാനമന്ത്രി പറഞ്ഞു

കേന്ദ്രകാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും കേന്ദ്ര ജല കമ്മീഷനും പോലുള്ള ഏജൻസികൾ കൃത്യമായ രീതിയിലുള്ള കാലാവസ്ഥ പ്രവചനമാണ് നടത്തി വരുന്നത്

മുഖ്യമന്ത്രി മാർ സംസ്ഥാനങ്ങളിലെ പ്രളയക്കെടുതികൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എന്നാൽ കീഴക്കൻ മലയോരങ്ങളിൽ മഴ തുടരു ന്നതിനാൽ ജാഗ്രത്യും ശക്തമാക്കിയിട്ടുണ്ട്

ചെന്നൈ പോർട്ട് ബ്ലയർ എന്നിവിടങ്ങളെ ബന്ധിപ്പിക്കുന്ന അത്യാധുനിക കേബിൾ ശൃംഖല രാഷ്ട്രത്തിന് സമർ പ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട അതിർത്തി പ്രദേശങ്ങളുടെയും ദ്വീപ് സംസ്ഥാനങ്ങ ളുടെയും വേഗത്തിലുള്ള വികസനത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധ മാണ് പുതിയ സംവിധാനം വന്നതോടെ ആൻഡമാൻ നിക്കോബാർ നിവാസികൾക്ക് ബാങ്കിംഗ് ഷോപ്പിംഗ് ടെലി മെഡിസിൻ എന്നിവ ഇനി ഓൺലൈനിൽ ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

മുഖാവരണം ധരിക്കുക കൈകഴുകുക വ്യക്തി ശുചിത്വം പാലിക്കുക ശാരീരിക അകലം പാലിക്കുക തുടങ്ങിയ മുൻകരുതലുകളും ആളുകൾ പാലിക്കുന്നു ണ്ടെന്ന് സംസ്ഥാനങ്ങൾ ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം നിർദേ ശിച്ചു ദുരന്തമുഖങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നവർ നിർ ബന്ധമായും കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് പ്രായമായവർക്കും ഗർഭിണികൾക്കും രോഗാവസ്ഥയുള്ളവർക്കും പ്രത്യേക ശ്രദ്ധ നൽകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ശ്രമ മെന്നും അദ്ദേഹം പറഞ്ഞു

ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക മാലിദ്വീപ് മലേഷ്യ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളാണ് സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയത് അനുശോചന സന്ദേശങ്ങളയച്ച രാജ്യങ്ങൾക്ക് വിദേശകാര്യ മന്ത്രി എസ്

വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ മൂന്ന് ഭാഗ്യങ്ങളായി തിരിച്ചുള്ള വിശദമായ പരിശോധനയാണ് നടക്കുന്നിൽ ്രഅതേസമയം വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കോക്പിറ്റ് റ്റ്ലോയിസ് റെക്കോർഡർ എന്നിവയുടെ പരിശോധന ഡൽഹിയിൽ ് നടക്കുകയാണ്

കൂടിക്കാഴ്ചക്ക് പിന്നാലെ രാജസ്ഥാനിലെ പ്രതിസന്ധിക്ക് തത്കാലം അയവു വന്നതായി കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു ഉച്ചയ്ക്ക് ഒരു മണിയോടെ നടത്തിയ ചർച്ച രണ്ടു മണിക്കൂറോളം നീണ്ടു നിന്നു

കർഷകർക്ക് നീതി ന്ന്ൽക്കാനുള്ള കേന്ദ്ര സർക്കാറിന്റെ ശ്രമങ്ങ ൾക്ക് മമത സർക്കാർ തുട്ടയിട്ടുകയാണ്

ഈ നി ലപാട് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ഗിരിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് രാജ്യം അദ്ദേഹത്തിന് സ്മരണാഞ്ജലികൾ അർപ്പിച്ചു രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി രാം നാഥ് കോവിദ്ദ് വി

ഗിരിയുടെ ചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തി